പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു

കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണപ്രദേശങ്ങളിലുമാണ് രണ്ടാംഘട്ട റിഹേഴ്സൽ നടന്നത് വിശദവിവരങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി

കോവിഡ് വാക്സിനെത്തുമ്പോൾ വിതരണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ രണ്ടാമതും ഡ്രൈ റൺ നടത്തിയത്

ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കളകർമാർ നേതൃത്വം നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ജനറൽ ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ ഡ്രൈ റണ്ണിന്റെ മേൽനോട്ടത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ നിന്ന് പോളിയോ നിർമാർജനം ചെയ്തതു പോലെ കോവിഡിനെ ഈ സർക്കാർ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു

യൂറോപ്യൻ ആഗോളതലങ്ങളിലെ സുസ്ഥിരവും ശക്തവുമായ നേതൃത്വത്തിൽ ചാൻസലർ മെർക്കൽ ദീർഘകാലമായി വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

പ്രകടനപത്രിക നടക്കുക്കീയ സർക്കാരാണിതെന്നും കോവിഡ് മഹാമാരിയെ ആർജവത്തോടെ നേരിട്ടെന്നും സർക്കാറിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മുദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി

ഫിസ്പ്പൂട് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് ഇറങ്ങി പോയ പ്രതിപക്ഷ്ട് സഭാ കവാടത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തി

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പോകുന്നതിൽ സർക്കാർ വിജയിച്ചു മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്നും സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള ബാങ്കിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതായും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു കാർഷിക നിയമം താങ്ങുവില സമ്പ്രദായത്തെ ബാധിക്കുകയും പൂഴ്ത്തിവെപ്പിന് കളമൊരുക്കുകയും ചെയ്യും കാർഷിക സ്വയം പര്യാപ്തതയ്ക്ക് കേരളം ശ്രമിക്കുമെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി

രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിൽ കേന്ദ്രസംസ്ഥാന സർക്കാരുകൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്നും നയപ്രഖ്യാപനം ആവശ്യപ്പെടുന്നു പതിനാലാം കേരള നിയമസഭയുടെ ഇരുപത്തിരണ്ടാമത്തെയും അവസാനത്തെയും സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്

തീവ്രവാദ സമിതിയുടെ അദ്ധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭീകരതയ്ക്കെതിരായി മുന്നിൽ നിന്ന് പോരാടുന്നതിന് പുറമെ അതിർത്തി കടന്നുള്ള ഭീകരപ്രശ്നങ്ങൾ നേരിടുന്നതിന് ഇന്ത്യക്ക് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ആരോഗൃവകുപ്പിന്റെ കോവിഡ് പ്രതി്രോധ നടപടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രി കെ കെ ശൈലജ യുമായും ചർച്ച നടത്തും കേന്ദ്ര ഭക്ഷ്യസംസ്കരണ വൃവസായ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി മിൻഹാജ് ആലം ന്യൂഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോ

സിംഗ് എന്നിവർ നാളെ ആലപ്പുഴ ജില്ലയിലും സന്ദർശനം നടത്തും

ഒഡീഷയിലെ പക്ഷികൾക്കിടയിയില്ലെ റിപ്പോർട്ട് ചെയ്യണമെന്ന് കർഷകർ കോഴിസംരംഭകർ വ്യാപാരികൾ എന്നിവരുൾപ്പെടെ പൊതുജനങ്ങളോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്

അമേരിക്കയുടെ അധികാര കേന്ദ്രമായ വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ സെന്ററിൽ ട്രംപ് അനുകൂലികൾ അതിക്രമിച്ച് കയറിയതി ന് പിന്നാലെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്

ഇത് ലോകമെമ്പാടും സാവധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി മധ്യപ്രദേശിലെ ഝാൻസിയിൽ പറഞ്ഞു